പരസ്പര സമ്മതത്തോടെയുള്ള സ്വർഗ്ഗു ലൈംഗികത ക്രിമിനൽ കുറ്റമല്ലെന്ന് സുപ്രീം കോടതി

ആഗോള ഘടകങ്ങൾ മൂലമാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറയുന്നതെന്ന് കേന്ദ്ര ധന്മ്രന്തി അരുൺ ജെയ്റ്റ്ലി

ഇന്ത്യയും ബൾഗേറിയയും തമ്മിൽ പരസ്പര സഹകരണത്തിന്റെ അനന്ത സാധ്യതകളാണുള്ളതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

കേരളത്തിലെ നാല് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിശദമായി വാദം കേൾക്കും

ഒ എക്സ്പോയ്ക്ക് ബംഗളൂരുവിൽ തുടക്കം

പോംപിയോയും മാറ്റിസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സന്ദർശിക്കുന്നുണ്ട് ഇറാനിൽ നിന്നുള്ള ക്രൂഡോയിൽ ഇറക്കുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ഇന്തോ പെസഫിക് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയും ചർച്ചാവിഷയമാകും അതേസമയം ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷാ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ട്രംപ് ഭരണകൂടം അതീവ തൽപരരാണെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ജെയിംസ് മാറ്റിസ് അറിയിച്ചു മേഖലയിലെ സുരക്ഷിതവും ഇന്തോ പെസഫിക് അഭിവൃദ്ധി ഉറപ്പാക്കുന്നതുമായ പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിലേയ്ക്കുള്ള യാത്രാമധ്യേ വിമാനത്തിൽ വാർത്താ ലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ സന്ദർശനവേളയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവലുമായും കൂടിക്കാഴ്ച നടത്തും മേഖല ആഗോള സുരക്ഷയ്ക്കായി ഇന്ത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഭീകരതയ്ക്കെതിരെയും പ്രതിരോധ ഗവേഷണ മേഖലയിലും ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ആരായുമെന്നും ജെയിംസ് മാറ്റിസ് പറഞ്ഞു

വ്യത്യസ്ത വൃക്തിത്വങ്ങൾ അംഗീകരിക്കാൻ സമൂഹം പക്വതയാർജ്ജിച്ചതായി നിരീക്ഷിച്ച സുപ്രീം കോടതി വകുപ്പ് യുക്തി ഹീനവും ഏകപക്ഷിയവുമാണെന്ന് നിരീക്ഷിച്ചു ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത് ജസ്റ്റിസുമാരായ എ

ഖാൻവിൽകർ ഇന്ദു മൽഹോത്ര ആർ

നിലവിലെ സാഹചര്യം നേരിടാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവശ്യമായ എല്ലാ നടപടികളും സ്ഥീകരിച്ചു വ്യരികയാണെന്നും അദ്ദേഹം കറൻസിക്ൾക്കെതിരെയും പറഞ്ഞു മറ്റ് ഡോളർ ശക്തിയാർജ്ജിക്കുകയാണ്

നാണയ വിപണിയിലെ ചാഞ്ചാട്ടം എത്രയും വേഗം സാധാരണ നിലയിൽ ആകുമെന്നും അദ്ദേഹം പറ്ഞ്ഞു

രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനത്തിൽ പെടാതെ ഇപ്പോഴും പുറത്ത് കഴിയുന്നവരെ ഉദ്ദേശിച്ചാണ് തീരുമാനമെന്ന് കേന്ദ്ര മന്ത്രിസഭായോഗത്തിന് ശേഷം കേന്ദ്ര ധനമന്ത്രി അരുൺ ജയ്റ്റലി അറിയിച്ചു

റൂപയ് കാർഡ് ഉടമകളുടെ അപകട ഇൻഷറൻസ് പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ട് ലക്ഷമായും ഉയർത്തി എന്നും ധനമന്ത്രി അറിയിച്ചു

ഇടപാടിലൂടെ എൻ ഡി എ പ്രഗവ്ൺമെന്റ് സ്ഥകാര്യ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ സ്വാധീനം ചെലൂത്തി എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുതകൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത് ദൌർഭാഗ്യക്രമാണെന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു

ഇന്ത്യ ബൾഗേറിയ ബിസിനസ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി

ഇത് പരിധിയില്ലാതെ വികസിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻലിജെന്റ്സ് ഡാറ്റാ അനലിറ്റിക്സ് റോബോട്ടിക്സ് നാനോ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം സഹകരിച്ചു പ്രവർത്തിക്കാനാവുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു മൂന്നു ദിവസത്തെ ബൾഗേറിയൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിലാണ് ശ്രീ

ഔഷധം കൃഷി ഭക്ഷ്യ സംസ്കരണം വാഹന വ്യവസായം പ്രതിരോധ നിക്ഷേപം അടിസ്ഥാന സൌകര്യവികസനം തുടങ്ങിയ മേഖലകളിൽ പരസ്പരം സഹകരിക്കാനാവുമെന്നും രാഷ്ട്രപതി പറഞ്ഞു ബൾഗേറിയൻ സന്ദർശനം പൂർത്തിയാക്കി ശ്രീ രാംനാഥ് കോവിന്ദ് ഇന്ന് ഉച്ചയോടെ ചെക്ക് റിപ്പബ്പിക്കിലേക്ക് യാത്ര തിരിക്കും

ഒ ആറാമത് ദൈവാർഷിക സ്പെയ്സ് എക്സ്പോയ്ക്ക് ബംഗളൂരുവിൽ തുടക്കമായി

എസ്ആർ ഒ ചെയർമാൻ ഡോ

എസ് എൽ

ബഹിരാകാശ പദ്ധതികൾക്കായി ഇന്ത്യയും ഫ്രാൻസും യോജിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ഫ്രഞ്ച് സ്പെയ്സ് ഏജൻസി പ്രസിഡന്റ് ജീൻ ലെ ഗാൾ ചടങ്ങിൽ പറഞ്ഞു ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയിലെ വ്യവസായ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട പ്രദർശനമാണ് മൂന്നു ദിവസത്തെ എക്സ്പോയിൽ സംഘടിച്ചിരിക്കുന്നത്

അമൃത്സർ ബോഡ്ഗയ നാഗ്പൂർ സാംബർപൂർ സിർമൌർ വിശാഖപട്ടണം ജമ്മു എന്നിവിടങ്ങളിലാണ് ഐ ഐ എമ്മുകൾക്ക് സ്ഥിരം കാമ്പസുകൾ ആരംഭിക്കുക

ഐ

എഫ് എസ്

എഫ് നാവികസേന എന്നീ വിഭാഗങ്ങളിലെ മുങ്ങൽ വിദഗദ്ധർ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്

രണ്ട് മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്

ഉത്തര പശ്ചിമ ബംഗാൾ ഉൾക്കടലിലും അനുബന്ധമായി പശ്ചിമ ബംഗാൾ ഉത്തര ഒഡീഷ തീരങ്ങളിലും ന്യൂനമർദ്ദം ഉണ്ടായതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു

എസ് ഓപ്പണിൽ പുരുഷൻമാരുടെ സിംഗിൾസിൽ സ്പെയിന്റെ റഫേൽ നദാലും വനിതാ സിംഗിൾസിൽ സെറീനാ വില്യംസും സെമിയിൽ പ്രവേശിച്ചു കാർട്ടറിൽ ഡൊമിനിക് തീമിനെ അഞ്ച് സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് നദാൽ തോൽപിച്ചത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിനാ പ്തിസ്കോവയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് സെറീന വില്യംസ് സെമിയിൽ എത്തിയത്